പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

അലുമിനിയം ക്ഷീരം വസ്ത്രനിർമാണം ഗ്ലാസ് ഉപകരണം കളിമൺ തുടങ്ങിയ പ്രാദേശിക വൃവസായങ്ങൾക്ക് ഇടനാഴി പുതിയ അവസരങ്ങൾ തുറന്നു നൽകും

ഇതിൽ മൂന്ന് പേർ ബംഗളൂരുവിലെ നിംഹാൻസിലും രണ്ട് പേർ ഹൈദരാബാദ് സിസിഎംബിയിലും ഒരാൾ പൂനെ എൻഐവിയിലും ചികിൽസയിലാണെന്ന് കേന്ദ്ര ആരോഗൃ മന്ത്രാലയം അറിയിച്ചു ഈ ആറുപേരെയും വൃത്യസ്ത മുറികളിൽ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയമാക്കിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ഇവരുടെ സഹയാത്രികരെയും കുടുംബാംഗങ്ങളെയും അടുത്തു ബന്ധപ്പെട്ടവരെയും കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു സ്ഥിതിഗതികൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ലാബുകളിലേക്ക് പരിശോധനാഫലം കൈമാറണമെന്നും മെച്ചപ്പെട്ട നിരീക്ഷണം നിയന്ത്രണം പരിശോധന എന്നിവ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ നിർദേശം നൽകിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

കെയിൽ നിന്നുളള വിവിധ ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്

യിൽ ജനിതക മാറ്റം വന്ന കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ കേന്ദ്ര സർക്കാർ പ്രതിരോധമാർഗങ്ങൾ ആവിഷ്കരിച്ചു വിമാനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി

യിലുണ്ടായ വ്യാപനശേഷി കൂടിയ കോവിഡ് വകഭേദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ മാർഗ്ഗനിർദ്ദേശം

വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും മതപരമായ സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിന് പുതുവർഷത്തിന്റെ തലേദിവസവും പുതുവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മഹാരാഷ്ട്ര സർക്കാരിന്റെ ദുരിതാശ്വാസ പുനരധിവാസ വകുപ്പും പുതുവർഷാഘോഷത്തിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്

സർക്കാരും കർഷകരും തമ്മിലുള്ള ആറാം വട്ട ചർച്ചയാണ് നാളെ നടക്കുന്നത് കർഷക നിയമങ്ങൾക്ക് പുറമേ താങ്ങുവില വായു ഗുണനിലവാരം വൈദ്യൂതി എന്നിവ സംബന്ധിച്ച നിയമങ്ങൾ തുടങ്ങിയവയും നാളെ ചർച്ചയാകും

സന്ദർശനത്തിന്റെ ഭാഗമായി ഖത്തറിലെ മുതിർന്ന നേതാക്കളെ സന്ദർശിച്ച് പരസ്പര താൽപ്പര്യമുള്ള വിവിധ വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ അദ്ദേഹം സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ സന്ദേശം കൈമാറുകയും ചെയ്തു ഊർജ നിക്ഷേപ രംഗത്ത് ദൌതൃ സംഘം രൂപവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഇരു രാജ്യങ്ങളും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെയും വിദേശകാരൃ മന്ത്രി സന്ദർശിച്ചു

മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഭുവനേശ്വറിൽ ചേർന്ന ക്യാബിനറ്റ് യോഗമാണ് ഇത് സംബന്ധിച്ച ശിപാർശയ്ക്ക് അംഗീകാരം നൽകിയത്

വർഷവും വിവരങ്ങൾ ഭരണസംവിധാനത്തിലെ അഴിമതി കുറയ്ക്കാനും സാമൂഹിക ഉച്ചനീചത്വം അനീതി ദാരിദ്ര്യം എന്നിവ തുടച്ചു നീക്കാനും നടപടി ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയും എതിരാളി പുഷ്പ കമാൽ ദഹാൽ പ്രചണ്ഡയും തമ്മിലുള്ള തർക്കപരിഹാരത്തിനായി നേരത്തെ ചൈനീസ് അംബാസഡർ ചർച്ചകൾ നടത്തിയിരുന്നു

അതിനിടെ നേപ്പാളിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മികച്ച പുരോഗതി ഉണ്ട്ായിട്ടുള്ളതായി ചൈനീസ് വിദേശകാര്യ വക്താവ് മാധ്യമങ്ങളെ അറിയിച്ചു

ആർ അശ്ചിന്റെയും ജസ്പ്രീത് ബുംറ യുടെയും ജഡേജയുടെയും മികച്ച ബൌളിങ് പ്രകടനമാണ് ഇന്ത്യയെ തുണച്ചത്

ടി

മോഹൻ ബഗാനെ നേരിടും

ഇന്നലെ കരുത്തരായ ബാംഗ്ലൂർ എഫ്

യെ എതിരില്ലാത്ത ഒരു ഗോളിന് ജംഷഡ്പൂർ പരാജയപ്പെടുത്തിയിരുന്നു

ടി നഷ്ടപരിഹാരത്തുകയുടെ ഒൻപതാമത് ഗഡുവായി ആറായിരം കോടി രൂപ കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കൈമാറി

എസ്

വിലക്കയറ്റത്തെ തുടർന്ന് സെപ്റ്റംബറിലാണ് സർക്കാർ ഉള്ളി കയറ്റുമതി നിരോധിച്ചത്

ഇതോടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം പൂർണതോതിൽ കേന്ദ്രഭരണ പ്രദേശത്ത് നിലവിൽ വന്നു

നിരവധി റാങ്ക് ലിസ്റ്റുകളുടെ ചുരുക്കപ്പട്ടികയും അടുത്ത ദിവസം പ്രസിദ്ധ്യീകരിക്കും

മലയോര മേഖലയിൽ ഇടിമിന്നൽ സജീവമായേക്കും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി